ഒഴിപ്പിക്കൽ നടപടി ഇന്ന് പൂർത്തിയാകും

ഒഴി പ്പിക്കൽ നടപടി ഇന്ന് പൂർത്തിയാകും ള്ള്ട്ട്ടറി രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് തിരി യേണ്ട ഘട്ടമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ദുരിതത്തിനിരയായവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിനനുസരിച്ച പദ്ധതി യാണ് ഗവൺമെന്റ് തയാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ക്യാമ്പുകളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് ഒന്നിനും മുട്ടുണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കും ഏറ്റവും പ്രധാനം ശുദ്ധജലം ലഭ്യമാക്കുകയാണ് മലിനീകരിക്കപ്പെട്ട ജലസ്രോതസ്സു കൾ പൂർണമായി ശുദ്ധീകരിക്കാനാവണം പൊട്ടിയ പൈപ്പ് ലൈനുകൾ നന്നാ ക്കണം ഇതിനാവശ്യമായ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരി ക്കുമെന്നുംമുഖ്യമന്ത്രി പറഞ്ഞു ശുചീകരണം ഫലപ്രദമായി നടത്തുന്നതിന് മാലിന്യ മുക്ത പ്രോട്ടോ കോൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രളയക്കെടുതിയിൽ സംസ്ഥാനത്തെ സഹായിച്ച എല്ലാ മേഖലയിലുള്ളവർക്കും മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് വിവിധ തരം സഹായങ്ങളാണ് കേന്ദ്ര ഗവൺമെൻ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു

രക്ഷാപ്രവർത്തനത്തിന് വന്ന ബോട്ടുകളിൽ കേടുപാട് വന്നവയ്ക്ക് ന്യായമായ നഷ്ടപ്പരിഹാരം നൽകും മത്സ്യത്തൊ ഴിലാളികളുടെ സഹായവും മനുഷ്യസ്നേഹവും ആദരിക്കാനായി തിരികെ യെത്തുമ്പോൾ നാട്ടിൽ ഈ സംഘങ്ങൾക്ക് സ്വീകരണം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭക്ഷ്യ വസ്തുക്കളുടെ വില കയറ്റി വിൽക്കാനുള്ള ശ്രമം ഗവൺമെന്റ് അനുവദി ക്കില്ലെന്നും പിണറായി വിജയൻ വൃക്തമാക്കി

സിയുടെ ദീർഘദൂര സർവീസുകളുൾപ്പെടെ നടത്തണമെന്ന് നിർദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറ ഞ്ഞു

ആറ് മെഡിക്കൽ വിദഗ്ധ സംഘത്തെയും അയക്കുന്നുണ്ട് റെയിൽവെ പുതുപ്പുകളും ബെഡ്ഷീറ്റുകളും നൽകും

എയർഇന്ത്യ ദുരിതാശ്ചാസ സാമ ഗ്രി കൾ സൌജ നൃ മായി എത്തിക്കു മെന്ന് അറിയിച്ചിട്ടു ണ്ട് കേരളത്തിലെ പ്രളയക്കെടുതി അവലോകനം ചെയ്യാൻ ന്യൂഡൽഹി യിൽ ചേർന്ന ദേശീയ പ്രതിസന്ധി നിവാരണ സമിതിയുടെ യോഗത്തിൽ കേരളത്തിന് ആവശ്യമായ ഭക്ഷണവും മരുന്നും വെള്ളവും ഇന്ധനവും എത്തിക്കാൻ ക്യാബിനറ്റ് സെക്രട്ടറി പി കെ സിൻഹ നിർദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ള്ളിട്ടു സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം ഇന്ന് പൂർണമായും പുനസ്ഥാപിച്ചേ ക്കും മംഗലൂരു ചെന്നൈ റൂട്ടിലും തിരുവ്നന്തപുരം എറണാകുളം റൂട്ടിലും ട്രെയിൻ ഗതാഗതം ഇന്നലെ പുനസ്ഥാപിച്ചു ഷൊർണ്ണൂറിനും എറണാകുള ത്തിനുമിടയിലാണ് ഗതാഗതം പുനസ്ഥാപിക്കാനുള്ളത് ഇന്നത്തെ മംഗലൂരു തിരുവനന്തപുരം പരശുരാം എക്സ്പ്രസ് പതിവു പോലെ സർവീസ് നട ത്തുമെന്നും എന്നാൽ ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പാത പ്രവർത്തനക്ഷമമായാൽ മാത്രമേ യാത്ര തുടരൂവെന്നും റെയിൽവെ അറി യിച്ചു തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തു നിന്നും രണ്ട് പ്രത്യേക ട്രെയിനുകൾ ഇന്ന് കൊൽക്കത്തയിലേക്ക് സർവീസ് നടത്തും

ള്ളുകള സംസ്ഥാനത്ത് റോഡ് യാത്ര ഏറെക്കുറെ സാധ്യമായതോടെ മൂന്നു നാല് ദിവസമായി കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ക്കാൻ കെ

സി അടിയന്തര നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദേശം നൽകി ആവശ്യത്തിന് ജീവന ക്കാരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വിളിച്ചുവരുത്തി എല്ലാ ജില്ലാ കേന്ദ്ര ങ്ങളെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ൾശ്ശേര പ്രളയബാധിത സ്ഥലങ്ങളിലെ വീടുകളും പരിസരങ്ങളും ജനകീയ പങ്കാ ളിത്തത്തോടെ ശുചിയാക്കി പൂർവസ്ഥിതിയിലാക്കുന്നതിന് വാർഡ് തലത്തിൽ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചതായി ഹരിത കേരള മിഷൻ വൈസ് ചെയർപേ ഴ്സൺ ഡോ

ഹരിതകേരളം ശുചിത്വ മിഷൻ ആരോഗൃവകുപ്പ് തദ്ദേശ സ്ഥയംഭരണ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ ഇതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട വെള്ളപ്പൊക്കത്തിലകപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുന്നതിന് പ്രവർത്തിച്ച പര മ്പരാഗത മത്സ്യത്തൊഴിലാളികളെ മത്സ്യഫെഡ് ആദരിക്കുമെന്ന് ചെയർമാൻ പി പി ചിത്തരഞ്ജൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

രംഭവ് പ്രളയക്കെടുതിയും ദുരന്തനിവാരണ പ്രവർത്തനങ്ങളും തുടർ നടപടി കളും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും വൈകിട്ട് നാലിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം ള്ള്ട്ടിട്ടു സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത നാലു ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്ന് ദേശീയ ദുരന്തനിവാരണ അതോറിറ്റി ന്യൂഡൽഹി യിൽ അറിയിച്ചു എന്നാൽ ഇടുക്കി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ട് തുടർദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചതായി അതോ റിറ്റി വെളിപ്പെടുത്തി ൾശ്രര കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും ജലനിരപ്പ് താഴ്ന്ന് തുടങ്ങി കുട്ടനാട്ടിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായി രണ്ട് ലക്ഷം പേരെ സുരക്ഷിത കേന്ദ്രങ്ങ ളിലേക്ക് മാറ്റി ചെങ്ങന്നൂരിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ വെള്ളത്തിലായ വീടുകളിൽ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ജനങ്ങൾ താൽപ ര്യം കാണിക്കുന്നില്ല ഇവർക്ക് ഭക്ഷണം നൽകി വരികയാണ് രക്ഷാപ്ര വർത്തനം ഇന്നും തുടരും ള്ളിട്ടുള് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളപ്പൊക്ക കെടുതി തുടരുന്നു കുമരകം തിരുവാർപ്പ് പ്രദേ ശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ആളുകളെ ഒഴിപ്പിക്കാൻ റവന്യൂവകുപ്പ് നടപടി തുടങ്ങി

ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ ജില്ലയിൽ വെള്ളപ്പൊക്കക്കെടുതിയിൽ മരണമട ഞ്ഞവരുടെ എണ്ണം ആറായി ള്ളമാര ഇടുക്കിയിലെ ദുരി താ ശ്യാസ ക്യാമ്പു കളിലേക്കായി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ എട്ടു ലോഡ് ഭക്ഷ്യവസ്തുക്കൾ നൽകി അതിർത്തിയായ കമ്പംമേട്ടിൽ ഇടുക്കി ആർഡിഒ വഴി ഉടുമ്പൻചോല തഹ്സിൽദാർ ഇവ ഏറ്റുവാങ്ങി

കർകവിഞ്ഞൊഴുകി വെള്ളക്കെട്ടിന് ഇട യാക്കിയ കല്ലടയാറ്റിലെയും പള്ളിക്കലാറിലെയും ഇത്തിക്കരയാറിലെയും ജലനിരപ്പിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്

ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വള്ളങ്ങൾ തിരികെയെത്തിക്കുക

പൂവത്തുശ്ശേരി കുത്തിയതോട് ഒഴികെ പ്രളയബാധിത മേഖലകളിലെ രക്ഷാ പ്രവർത്തനം പൂർത്തിയായതായി ജില്ലാ കലക്ടർ മുഹമ്മദ് വൈ സഫീറുല്ല അറിയിച്ചു

പറ്റവൂർ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട് ആലുവ പെരുമ്പാവൂർ മൂവാറ്റു പുഴ അങ്കമാലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനജീവിതം സാധാരണ നിലയി ലായി ര രാജ്ഞ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാൻ തൊഴിലുറപ്പ് പദ്ധതി ഉപ യോഗിക്കുമെന്നും വീട് പൂർണമായും തകർന്നവർക്ക് പുതിയ വീട് ലഭ്യമാ ക്കുന്നതു വരെ താമസിക്കാൻ ബദൽ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി എ

പാലക്കാട് തൃത്താലയിൽ ചേർന്ന മഴക്കെടുതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കുള്ളട്ട്ടിട്ടു പാലക്കാട് നിന്ന് വിവിധ ജില്ലകളിലെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് ഹെലികോപ്റ്ററുകളിൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും എത്തിച്ചു രുട്ട്ട്ട്ടിട്ട കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും വീടുകളിലേക്ക് മടങ്ങി

പകുതിയിലേറെ ക്യാമ്പു കൾ ജില്ലയിൽ പിരിച്ചുവിട്ടു

കൊയിലാണ്ടി അവിടനല്ലൂർ സ്വദേശി മൊയ്തിയും വേങ്ങേരി ചാമക്കാമ ണ്ണിൽ സിദ്ധീഖുമാണ് മരിച്ചത്

ഇന്ധനവ ണ്ടികൾ എത്തുന്നതിന് കാലതാമസം മാത്രമേ നിലവിലുള്ളൂ

ഇന്നലെ തമ്പുകളുടെ നഗരമായ മിനയിൽ രാപ്പാർത്ത ഹാജിമാർ ഇന്ന് പുലർച്ചെയോടെ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങി സൂര്യാസ്തമയം വരെ അറഫയിൽ ആരാധനാ കർമങ്ങളിലും പ്രാർഥനയിലുമായി കഴിച്ചുകൂട്ടുന്നു അവർ പിന്നീട് മുസ്ദലിഫയിലേക്ക് നീങ്ങും

ഗുസ്തിയിൽ ബജ്രംഗ് പുണിയയാണ് സ്വർണം നേടിയത്

കബഡി ബാഡ്മിന്റൺ വനിതാ ഹോക്കി എന്നിവയിൽ ഇന്ത്യ ജയത്തോടെ തുടക്കം കുറിച്ചു